റെക്കോർഡ് വർദ്ധന

ജനിതക വൃതിയാനം വന്ന വൈറസിന്റെ പ്യാപനം വർദ്ധിച്ചുവരുന്നതായി മുഖൃമന്ത്രി പിണ്ണറായി വിജയൻ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാൻ നടപടി സ്പ്രീക്രിക്കുമെന്നും മുഖ്യമന്ത്രി

ഓക്സിജൻ വിതരണം ഊർജ്ജിതമാക്കാൻ കൂടുതൽ നടപടികളുമായി കേന്ദ്ര സർക്കാർ

സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ്

ബാംഗ്ലൂർ പോരാട്ടം അൽപ്പ സമയത്തിനകം

ജനിതക വൃതിയാനം വന്ന വൈറസിന്റെ വ്യാപനം വർദ്ധിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദാംശങ്ങളുമായി സുലൈമാൻ

സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചരൃത്തിൽ നിയന്ത്രണങ്ങളും പരിശോധനയും കർശനമാക്കുമെന്ന് മുഖൃമന്ത്രി അറിയിച്ചു

ബ്രിട്ടനിൽ നിന്നുളള ആദ്യ വൈദ്യ സഹായം ഇന്ന് ഇന്ത്യയിലെത്തി

കോവിഡ് പ്രതിസന്ധിയിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കപ്പേയാണ് ജസ്റ്റിസ് ഡി

ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത്

കൃഷകൃഷ എഎൻ ഷംസീർ എഎൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവ്വകലാശാലയിൽ നിയമനം നൽകാൻ്ട് നീക്കം എന്നാരോപിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോട്ടതി ഇടപെടൽ കണ്ണൂർ സർവ്വകലാശാലയിലെ എച്ച്ആർഡ്ഡി സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനമാണ് കോട്ടതി ത്ടഞ്ഞത്

തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവ്ധ്യി കഴിഞ്ഞശേഷം നിയമന നടപടികളിലേക്ക് കടന്നാൽ ്മതിയെന്നാണ് കോടതി നിർദേശിച്ചത്

മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ നാളെ എൽ ഡി

എല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും